പ്രധാനമന്ത്രിയുടെ ്അഭിനന്ദനം മറ്റു നഗരങ്ങൾ മാതൃക പിന്തുടരാൻ ആഹ്വാനം

പ്രതിദിന പരിശോധന ഒൻപത് ലക്ഷം കടന്നു

തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം പാട്ടത്തിന് നൽകിയത് എല്ലാ നടപടി ക്രമങ്ങളും പാലിച്ചുക്കാണ്ടാണെന്ന് കേന്ദ്ര വ്യോമയാനമന്ത്രി ഹർദ്ദീപ്പ്സിംഗ് പുരി വ്യക്തമാക്കി

എന്നാൽ തിരുവനന്തപ്പുരാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പും മേൽനോട്ടവ്ും അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ സർവ്വകക്ഷിയോഗത്തിന്റെ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കത്ത് മുഖേന അറിയിച്ചു

റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രഗവണ്മെന്റ് അംഗീകരിക്കുകയും ബിഡ്റ്റിന്റെ പത്തു ശതമാനം പരിധിക്കുള്ളിൽ വന്നാൽ അവർക്ക് നല്കാമെന്ന് വ്യവസ്ഥയും അംഗീകരിച്ചിരുന്നു

അതിനിടെ കേരള സർക്കാരിനെ കൂടി പങ്കെടുപ്പിച്ചു

കേന്ദ്ര തീരുമാന്റ് പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവക്കുന്തപുര്ത്ത് വിളിച്ചുചേർത്ത സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു ഇതും സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു നിയമ നടപട്ടികൾ തുടരുന്നതിനൊപ്പം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ടുപോകാനും യോഗം തീരുമാനിച്ചു വിമാനത്താ വളം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനമായി മാറ ണമെന്നാണ് പൊതുവികാരമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു

ഇത്തരം മാതൃക സ്വീകരിച്ച് മറ്റു നഗരങ്ങളും ശുചിത്വം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്

എസ് കാനഡ യു

ഫ്രാൻസ് ജർമ്മനി യു

അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

കർഷകരുടെ ക്ഷേമത്തിനായി ആത്മനിർഭർഭാരതിലൂടെ സർക്കാർ വിവിധ ചുവടുവയ്പ്പുകൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യവസായ പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

കോൺഫെഡ്റേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പന്ത്രണ്ടാമത് മെഡ് ടെക് ആഗോള സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യക്കും ലോകത്തിനാകെയും ആവശ്യമായ മരുന്ന് രാജ്യത്തെ മരുന്ന് നിർമ്മാണ മേഖല ലഭൃമാക്കിയതായി അദ്ദേഹം പറഞ്ഞു ആരോഗ്യ സംവിധാനം ഊർജ്ജസ്വലത കൈവരിക്കുന്നതിന് സാങ്കേതികവിദ്യയും ഉപകരണങ്ങളും പ്രയോജനപ്പെടുത്തേണ്ട സമയമാണിതെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു

മെച്ചപ്പെട്ട വീഡിയോ കോൺഫറൻസ് സംവിധാനം വികസിപ്പിക്കാനായി നടത്തിയ മത്സരത്തിന്റെ ഫലം കേന്ദ്ര മന്ത്രി ശ്രീ രവി ശങ്കർ പ്രസാദ് പ്രഖ്യാപിച്ചു ആലപ്പുഴ ആസ്ഥാനമായ ടെക്ജെൻസിയ സോഫ്റ്റ് വെയർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് തയ്യാറാക്കിയ വി കൺസോളിനെ വിജയിയായി തെരഞ്ഞെടുത്തു മത്സരത്തിൽ വിജയികളായവർക്ക് ഒരു കോടി രൂപയ്യൂടെ ധനസഹായത്തിനു പുറമെ പ്രവർത്തന പാലീന ചെലവുകൾക്കായി മൂന്നുവർഷത്തേക്ക് പത്ത് ലിക്ഷ്ട് രൂപയും നൽകുന്നതാണ്